ടി പിരിവുകൾ മുന്നിൽക്കണ്ട് വായ്പയെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുമെന്ന് കേന്ദ്രം

മോചിപ്പിച്ചു

രണ്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞർക്ക്

ഐ

റൺസിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ

എസ് ടി പിരിവുകൾ കണക്കാക്കി വായ്പയെടുക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതിന് അനുവാദം നൽകുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളുടെ ജി

വിശദാംശങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി

ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണൂ പ്രദേശങ്ങളും കേന്ദ്ര തീരുമാനത്തോട് യോജിക്കുന്നു

ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ തുട്ർ ചർച്ചകൾ നടത്തും കേന്ദ്രം കടം വാങ്ങി സംസ്ഥാനങ്ങൾക്ക് ന്റൽകിയാൽ അത് സർക്കാരിന്റെയും സ്വകാര്യ മേഖലയുടെയുട്ട് വായ്പാ ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമാകും സർക്കാർ ഗൃാരന്റികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വർദ്ധന ഉണ്ടായാൽ അതും വായ്പാ ചെലവിന്റെ വർദ്ധനവിന് കാരണമാകുമെന്നും ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇരുരാജ്യങ്ങളിലെയും കമാൻഡർ തലത്തിലെ സൈനിക ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ച കിഴക്കൻ ലഡാക്കിലെ ചുഷുളിലാണ് നടക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏഴാം വട്ട കമാൻഡർ തല ചർച്ചയാണിത്

ചുരുങ്ങിയ കാലയളവിൽ അഞ്ച് ലക്ഷം ടെലി കൺസൾട്ടേഷനുകൾ നടത്തിയതായി ആരോഗൃമന്ത്രാലയം അറിയിച്ചു

ആരോഗൃ പരിരക്ഷാ സേവനത്തിന്റെ ഡിജിറ്റൽ രീതി എന്ന നിലയിൽ ഇ സഞ്ജീവനി ഫലപ്രദമായ ഒരു സമാന്തര സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്

ഇരുരാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരുടെ ആത്മാർത്ഥമായ ശ്രമഫലമാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു പുതുതായി നിയമിതനായ ഇന്തൃൻ ഹൈക്കമ്മീഷണർ വിക്രം ദൊരൈ സ്വാമിയുടെ ധാക്ക സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബംഗ്ലാദേശ് മന്ത്രി ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധത്തെ ബഹുമുഖമെന്ന് വിശേഷിപ്പിച്ച ശ്രീ ക്വാഡർ ദീർഘകാലമായി നിലനിൽക്കുന്ന ഉഭയകക്ഷി പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്നും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നദീജലം പങ്കിടൽ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും വൃക്തമാക്കി സാമ്പത്തിക രംഗത്തെ വർദ്ധിച്ച സഹകരണത്തിനുള്ള സാധ്യതകൾ തുറക്കുന്നതിനായി ഇരുരാജൃങ്ങളും സംയുക്തമായി പ്രവർത്തിച്ച് വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു

പുതുതായി നിയമിതനായ ഡെപ്യൂട്ടി ഗവർണർ എം രാജേശ്വർ റാവുവിന്റെ നിയമനത്തോടെയാണിത് നേരത്തെ ആർ ബി

കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം ചുമതലയേറ്റത്

ദരിദ്രരും പിന്നാക്ക വൃഭ്യ്ക്കാർക്കുമായി സമർപ്പിച്ചതായിരുന്നു വിനോദ്കുമാറിന്റെ ജീവിതമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു

കടലാസിന് സമാനമായ ഈ വസ്തു കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ പൊതിഞ്ഞാൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികൾ ഭക്ഷ്യവസ്തുവിൽ പ്രവേശിച്ച് ജീർണിക്കുന്നത് തടയാനാകും

മോചിതരായ ഇന്ത്യൻ പൌരന്മാരുമായി ടുണീഷൃയിലെ ഇന്ത്യൻ സ്ഥാനപതി ഫോൺ സംഭാഷണം നടത്തിയതായി വിദേശകാരൃമന്ത്രാലയം അറിയിച്ചു ഇന്നലെ പുറത്തിറങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥരും സുരക്ഷിതരും ആരോഗ്യവാൻമാരുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇവരെ നാട്ടിൽ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് വരികയാണ് ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതരായി മോചിപ്പിക്കുന്നതിൽ ഉറച്ച് സഹകരിച്ച ലിബിയൻ അധികൃതർക്കും മേഖലയിലെ ഗോത്രവർഗ്ഗ മൂപ്പന്മാർക്കും മന്ത്രാലയം നന്ദി അറിയിച്ചു

സാമ്പിൾ പരിശോധനകളിൽ ഉണ്ടായ കുറവാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം കുറയാൻ ഇടയായതെന്നാണ് സൂചന

ശൈലജ അറിയിച്ചു

ലേലവിപണിയെക്കുറിച്ചുള്ള പഠനത്തിനും പുതിയ ലേല സമ്പ്രദായങ്ങൾ ആവിഷ്ക്കരിച്ചതിനുമാണ് പുരസ്ക്കാരം ലേലരീതികളിൽ ഇരുവരും നടത്തിയ പഠനങ്ങളും പരിഷ്ക്കാരങ്ങളും ചരക്ക് സേവനമേഖല്പുകളിൽ ഏറെ മാറ്റമുണ്ടാക്കിയെന്ന് പുരസ്ക്കാര നിർണ്ണയ്ക് സമിതി വിലയിരുത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാീണി

ഇന്ന് ദുബായിയിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും

രാവിലെ കേന്ദ്ര ഉപരിതല ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി വിഡീയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം നിർവ്വഹിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ധ്യക്ഷനായിരിക്കും